ഡൽഹിയിലെ രാജ്പഥിൽ രാവിലെ ദേശീയപതാക ഉയർത്തുന്ന രാഷ്ട്രപതി റിപ്പബ്ലിക് ദിന പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കും ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൾ റമാഫോസയാണ് ഈ വർഷത്തെ മുഖ്യാതിഥി

ദിനാഘോഷത്തിന് ഡൽഹിയിൽ അതീവ സുരക്ഷാസജ്ജീകരണ ങ്ങൾ ഏർപ്പെടുത്തി

താക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കും കോഴിക്കോട്ട് വെസ്റ്ഹിൽ വിക്രം മൈതാനിയിൽ മന്ത്രി എ

ശശീന്ദ്രൻ പതാക ഉയർത്തും എറണാകുളത്ത് മന്ത്രി എ

ആപ്പുഴയിൽ മന്ത്രി ജി സുധാകരൻ മലപ്പുറത്ത് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ കണ്ണൂരിൽ മന്ത്രി ഇ

ജയരാ ജൻ എന്നിവർ പതാക ഉയർത്തും കൊല്ലത്ത് മന്ത്രി ജെ മെഴ്സിക്കുട്ടി യമ്മയും പത്തനംതിട്ടയിൽ മന്ത്രി കടകംപള്ളി സൂരേന്ദ്രനുമാണ് പതാക ഉയർത്തുന്നത്

ബഹുസ്വരതയാണ് ഇന്ത്യയുടെ ശക്തിയെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ജാതി മത സംഘടനാ പരിഗണനകൾക്കപ്പുറത്ത് രാജ്യം എല്ലാ വരുടേതുമാണെന്ന് റിപ്പബ്ലിക്ദിന തലേന്ന് രാഷ്ട്രത്തോടായി നടത്തിയ പ്രസം ഗത്തിൽ രാഷ്ട്രപതി പറഞ്ഞു വൈവിധ്യം ജനാധിപത്യം വികസനം എന്നി വയ്ക്ക് ഒരേപോലെ പ്രാധാനൃം കൊടുക്കുന്ന മാതൃകയാണ് ഇന്ത്യയുടേ തെന്നും രാഷ്ട്രപതി വൃക്തമാക്കി മുന്നാക്ക സമുദായങ്ങളിലെ പാവപ്പെട്ട വർക്ക് വിദ്യാഭ്യാസത്തിനും ഗവൺമെന്റ് ജോലികൾക്കും സംവരണം ഏർപ്പെടുത്തുന്ന ഭരണഘടനാ ഭേദഗതി മഹാത്മാഗാന്ധിയുടെ സ്ഥപ്നങ്ങ ളുടെ പൂർത്തീകരണത്തിലേക്ക് പുതിയൊരു ചുവടുവയ്പാണെന്ന് രാംനാഥ് കോവിന്ദ് പറഞ്ഞു സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരുടെ ഉന്നമനവും ഭരണപ്രാതിനിധൃവും മഹാത്മജിയുടെ അഭിലാഷമായിരുന്നുവെന്ന് രാഷ്ട്ര പതി അനുസ്മരിച്ചു ജാതീയമായ ചേരിതിരിവുകൾക്ക് അടിസ്ഥാനമില്ലെന്ന ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിന്റെ പൂർത്തീകരണമാണ് ഭരണഘടനാ ഭേദഗ തിയെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ വ്യായാമമല്ലെന്നും ബൌദ്ധികവും പുരോഗമനപരവുമായ പ്രവർത്തനമാണെന്നും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച് രാഷ്ട്രപതി അഭി പ്രായപ്പെട്ടു പൂർണ്ണ ദാരിദൃനിർമ്മാർജ്ജനത്തിന്റെ പടിവാതിൽക്കലാണ് ഇന്ത്യയെന്നും രാംനാഥ് കോവിന്ദ് പറഞ്ഞു

സാമൂഹ്യപ്രവർത്തകൻ നാനാജി ദേശ്മുഖ് ഗായകൻ ഭുപേൻ ഹസാരിക എന്നിവർക്ക് മരണാനന്തര ബഹുമതിയായാണ് ഭാരതരത്ന സമ്മാനിക്കുന്നത് രാജ്യത്തെ ഗ്രാമവികസനത്തിന് നാനാജി ദേശ്മുഖ് നൽകിയ സംഭാവനകൾ ഗ്രാമീണ ഭാരതത്തിന്റെ മുഖച്ഛായ മാറ്റി യതായി വിലയിരുത്തിയാണ് പരമോന്നത ബഹുമതി അദ്ദേഹത്തിന് പ്രഖ്യാ പിച്ചത് സാമൂഹൃനീതിയുടെയും സാഹോദരൃത്തിന്റെയും സൌഹാർദ്ദത്തി ന്റെയും സന്ദേശങ്ങൾ തലമുറകളിലേക്ക് പകരുന്നതാണ് ഭുപേൻ ഹസാരി കയുടെ സംഗീതമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു ഈ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച രാജ്യതന്ത്രജ്ഞനാണ് മുൻരാഷ്ട്രപതി പ്രണബ് മുഖർജിയെന്ന് പ്രധാനമന്ത്രി വിലയിരുത്തി ഇന്ത്യയുടെ വളർച്ച യിൽ വിശ്രമമില്ലാത്തതും നിസ്വാർത്ഥവുമായ സേവനങ്ങളാണ് പതിറ്റാണ്ടു കളായി അദ്ദേഹം നൽകിയതെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു

എസ് നമ്പിനാരായണനും പത്മഭൂഷൺ ബഹുമതി ശിവഗിരി എസ് എൻ ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദ ഗായകൻ കെ

ജയൻ പുരാവസ്തു ഗവേഷകൻ കെ

മുഹമ്മദ് കാൻസർ രോഗ വിദഗ്ദ്ധൻ മാമൻ ചാണ്ടി ഗായകൻ ശങ്കർ മഹാദേവൻ നടനും നർത്തകനുമായ പ്രഭുദേവ ഡ്രമ്മർ ശിവമണി എന്നിവർക്ക് പത്മശ്രീ പുരസ്കാരവും ലഭിച്ചു തമിഴ്നാട്ടിൽനി ന്നുള്ള നർത്തകി നടരാജ് പത്മശ്രീ ലഭിക്കുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗ ത്തിലെ ആദ്യവ്യക്തിയായി കേരളം നേരിട്ട മഹാപ്രളത്തിൽ കൈത്താങ്ങായ സേനാംഗ ങ്ങൾക്ക് രാഷ്ട്രപതിയുടെ ആദരം പ്രളയത്തിൽ അകപ്പെട്ട കൈക്കുഞ്ഞിനെ രക്ഷിച്ച വ്യോമസേനാ ഗരുഡ് കമാന്റോ വിംഗ് കമാൻഡർ പ്രശാന്ത് നായർ ധീരതയ്ക്ക് വായുസേനാ മെഡലിന് അർഹനായി ഓഖി കൊടുങ്കാറ്റിൽ അകപ്പെട്ടവരെ രക്ഷിച്ച സർജന്റ് അമിത്കുമാർ ഝാ ധീരതയ്ക്ക് വായു സേനമെഡലിന് അർഹനായി പായ് വഞ്ചിയിൽ കടലിൽ ഒറ്റക്ക് ലോകം ചുറ്റുന്നതിനിടെ കടലിൽ അകപ്പെട്ട കമാൻഡർ അഭിലാഷ് ടോമിക്ക് ധീരത യ്ക്കുള്ള നവ്സേന മെഡൽ ലഭിച്ചു

ഭീകരപ്രവർത്തനത്തിൽ നിന്ന് രാജ്യസേവക നായി മാറി വീരമൃത്യുവരിച്ച ലാൻസ് നായിക് നസീർ അഹമ്മദിന് സമാ ധാനകാലത്തെ പരമോന്നത ബഹുമതി അശോകചക്ര മരണാനന്തര ബഹു മതിയായി നൽകും

കീർത്തി ചക്ര ശൌര്യചക്ര പരമവിശിഷ്ട സേവാമെഡൽ യുദ്ധ് സേവാമെഡൽ വായു സേനാമെഡൽ നാവികസേനാ മെഡൽ സേനാമെഡൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു

ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് അധികാര ത്തിലെത്തിയ ഉടൻ കാർഷിക കടങ്ങൾ എഴുതി തള്ളിയതായി അദ്ദേഹം ഭുവനേശ്വറിൽ പറഞ്ഞു കേന്ദ്രവും പല സംസ്ഥാന ഗവൺമെന്റുകളും സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവഗണിക്കുകയാണെന്നും രാഹുൽഗാന്ധി കുറ്റപ്പെടുത്തി അയോധ്യഭൂമി തർക്ക കേസ് പരിഗണിക്കാൻ സുപ്രീംകോടതി പുതിയ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചു ജസ്റ്റിസ്മാരായ അശോക് ഭൂഷൺ അബ്ദുൾ നസീർ എന്നിവർ ബഞ്ചിലെ പുതിയ അംഗ ങ്ങളാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചിൽ ജസ്റ്റിസ് എസ്

ബോബ്ഡെയും ജസ്റ്റിസ് ഡി

ചന്ദ്രചൂഡുമാണ് മറ്റംഗങ്ങൾ

മന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുകയാണെന്ന് എ ഐ സി സി ജനറൽ സെക്ര ട്ടറി മുകുൾവാസ്നിക് കുറ്റപ്പെടുത്തി റിസർവ് ബാങ്കിനെ നോക്കുകുത്തി യാക്കി നോട്ട് നിയന്ത്രണവും വേണ്ടത്ര ആലോചനയില്ലാതെ ജി എസ് ടിയും നടപ്പാക്കിയ പ്രധാനമന്ത്രി ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണെന്നും മുകുൾവാസ്നിക് ആരോപിച്ചു

മൂന്നുദിവസത്തെ കോൺഗ്രസ് നാളെ രാവിലെ മുഖ്യമന്ത്രി പിണ റായി വിജയൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും

് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിൽ എത്തും

കണക്കിലെടുത്ത് സുരക്ഷാക്രമീകരണങ്ങൾ വിലയിരുത്താൻ ഉന്നതതല യോഗം ചേർന്നു കർശന സുരക്ഷയാണ് സന്ദർശനം പ്രമാണിച്ച് ഒരുക്കു ന്നത് അതിഥികൾ വേദിയിലേക്ക് കാറിന്റെ റിമോട്ട് കൺട്രോൾ താക്കോ ലുകൾ കൊണ്ടുവരാൻ പാടില്ലെന്ന് പ്രത്യേക നിർദ്ദേശം നൽകി

കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റുമാരുടെയും വനിതാ വൈസ് പ്രസിഡന്റുമാരുടെയും കൺവൻഷൻ അദ്ദേഹം ഉദ്ഘാ ടനം ചെയ്യും അന്തരിച്ച എം ഐ ഷാനവാസിന്റെ കുടുംബാംഗങ്ങളെ രാഹുൽഗാന്ധി സന്ദർശിക്കും യു ഡി എഫ് നേതാക്കളുമായി ഗസ്റ്റ് ഹൌസിൽ അദ്ദേഹം ചർച്ച നടത്തും വൈകുന്നേരത്തോടെ രാഹുൽഗാന്ധി ഡൽഹിക്ക് മടങ്ങും

ആദ്യ ഏകദിനത്തിലെ ടീം തന്നെയായിരിക്കും രണ്ടാം ഏകദിന ത്തിലും കളിക്കുന്നത്

കൊല്ലത്ത് ദേശീയ ജൂനിയർ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ കേരളം ഇന്ന് സായ് ഗുജറാത്തിനെ നേരിടും വൈകിട്ട് അഞ്ചിനാണ് മത്സ രം നിലവിൽ രണ്ടു മത്സരങ്ങൾ ജയിച്ച കേരളം ആറുപോയിന്റ് നേടിയിട്ടു ണ്ട് ഈ മത്സരം കൂടി ജയിച്ചാൽ പൂൾ വിന്നറായി അടുത്ത ഘട്ടത്തിൽ പ്രവേശിക്കും

ഴ്സ് എ ടി കെ കൊൽക്കത്ത മത്സരം സമനിലയിൽ പിരിഞ്ഞു

മലയാളത്തിലെ മധ്യവർത്തി സിനിമയുടെ പ്രയോക്താവായി രുന്നു ലെനിൻ രാജേന്ദ്രൻ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനു സ്മരിച്ചു കേരളത്തിന്റെ രാഷ്ട്രീയ നവോത്ഥാന മുന്നേറ്റങ്ങളെയും സാമൂ ഹൃപ്രശ്നങ്ങളെയും ലെനിൻ രാജേന്ദ്രൻ ചിത്രങ്ങളിൽ ഉൾപ്പെടുത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് വേനലും മഴയും ലെനിൻ രാജേ ന്ദ്രൻ അനുസ്മരണ സന്ധ്യയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുകയാ യിരുന്നു മുഖ്യമന്ത്രി

ഇത്തവണ ഇന്തൃയിലെ മുഴുവൻ ഹജ്ജ് സർവ്വീസുകളും എയർ ഇന്ത്യക്ക് ലഭിച്ചു രാജ്യാന്തര കമ്പനികളടക്കം പങ്കെടുത്ത ടെണ്ടറിലാണ് എയർ ഇന്ത്യക്ക് മുഴുവൻ സർവീസുകളും നേടിയെടുക്കാനായത് ഏറ്റവും കുറഞ്ഞ നിരക്ക് നൽകിയ കമ്പനിയെന്ന നിലയിലാണ് എയർ ഇന്ത്യക്ക് ടെണ്ടർ ലഭിച്ചത്

കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മി റ്റിയും യൂത്ത് ഫോറവും കാഴ്ചവൈകലൃം നേരിടുന്നവർക്ക് ഇന്നും നാളെയും മൊബൈൽ ബാങ്കിംഗ് പരിശീലനം നൽകും

മലപ്പുറം കീഴുപറ മ്പിൽ ഫെഡറേഷന്റെ അതിഥി മന്ദിരത്തിൽ ജില്ലാ പഞ്ചായത്ത് പണി കഴി പ്പിച്ച വനിതാഹോസ്റ്റൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും